തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം സജീവം

ജമ്മുകാശ്മീരിൽ ഷോപ്പിയാനിൽ സുരക്ഷാ ന് സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു

ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിൽ

പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കൾ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് അണികൾക്ക് ആവേശം പകർന്നു

ഭരണകക്ഷിയായ ബി ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഷോപ്പിയാൻ ജില്ലയിൽ കുപ്പോര ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

സുരക്ഷാ സേനയ്ക്കുനേരെ തീവ്രവാദികൾ നിറയൊഴിക്കുകയായിരുന്നു

ഇതനുസരിച്ച് പാചക വാതക സിലിണ്ടർ നിറയ്ക്കുന്നതും പുതിയ കണക്ഷൻ ബുക്ക് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും പൊതു സേവനകേന്ദ്രം വഴിയാകും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ ഇലക്ട്രോണിക്സ് ഐ

മന്ത്രി രവിശങ്കർപ്രസാദ് എന്നിവരുടെ സാന്നിദ്ധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്

നീക്കുന്നത് ഉൾപ്പെടെ എല്ലാ നിർമ്മാണ മണ്ണ് പ്രവർത്തനങ്ങളും നിർത്തി വെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള നിർമ്മാണ ജോലികളും നിർത്തി പാറ പൊട്ടിക്കുന്നതും ടാർ മിശ്രിത യൂണിറ്റുകളും അടച്ചു നാളെ യോടെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് രൂക്ഷമാകുമെ ന്നാണ് വിലയിരുത്തുന്നത്

ക്ഷേത്രത്തിൽ സ്ത്രീപ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവായ പശ്ചാത്തലത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഇലവുങ്കലിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കമാൻഡോകൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷ ഉറപ്പാക്കാൻ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ചവരെ നിയന്ത്രണങ്ങൾ തുടരും

മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനാലാണ് ഇപ്പോൾ പ്രവേശനം അനുവദിക്കാത്തത് അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിന് പോലീസ് സ്വീകരിക്കുന്ന നടപടികളോട് സഹകരിക്കണമെന്ന് ഡി

മാന്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു

വൈകിട്ട് നാല് മണിക്ക് എ

പ്രതിപക്ഷ ്യേത്റവ് രമേശ് ചെന്നിത്തല പി

കു ര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും

അടുത്തമാസം ഒൻപതിന് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഇതുസംബന്ധിച്ച അവലോകന യോഗത്തിനാണ് മുഖ്യമന്ത്രി എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ മന്ത്രി ഇ

ജയരാജൻ കിയാൽ എം

എന്നിവർ പങ്കെടുക്കും

ആന്ധ്രപ്രദേശ് തീരത്ത് ബംഗാൾ ശക്തമായ മഴക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പു നൽകി മീൻ പിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നേരത്തെപോയവർ തിരിച്ചെത്തണമെന്നും ഹൈദരബാദിലെ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പു നൽകി

മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് സാമാന്യം നല്ല മഴക്കു സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നാളെ കേരളത്തിൽ വ്യാപകമഴയുണ്ടാകും ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയാണ് ലഭിച്ചത് നെയ്യാർ അരുവിക്കര പേപ്പാറ ഡാമുകളുടെ ഷട്ടറുകൾ ഇന്നലെ ഉയർത്തി അഗസ്ത്യവന മേഖലയിൽ കനത്ത മഴയാണ് ലഭിച്ചത്

വിരാട് കൊലിയ്ക്ക് വിശ്രമം അനുവദിച്ചതിനാൽ രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്

മഹേന്ദ്രസിംഗ് ധോണിയ്ക്കു പകരം ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർലോസ് ബ്രാത് വെയിറ്റാണ് വിന്റീസിനെ നയിക്കുക

പാരുപ്പള്ളി കാശ്യപ് ഫ്രാൻസിന്റെ തോമാ ജൂനിയർ പോപോവിനോട് പരാജയപ്പെട്ടിരുന്നു

ലോക രണ്ടാം നമ്പർ താരം ജോക്കോവിച്ച് മൂന്നാം സീഡ് കാരനായ ഫെഡററെ മൂന്ന് സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് പരാജയപ്പെടുത്തിയത്

ഫൈനലിൽ റഷ്യയുടെ കരൈൻ കൊച്ച്നോവിനെ ജോക്കോവിച്ച് നേരിടും

ഇറാനുമേൽ ഇന്നേ വരെ ചുമത്തിയിട്ടുള്ളതിൽ വച്ച് കുറ്റവും കർശനമായ വ്യവസ്ഥകളാണ് പുതിയ ഉപരോധത്തിൽ ഉള്ളതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി

ഒൻപത് ഭീകരരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ദോഹയിലെ താലിബാൻ രാഷ്ട്രീയ കാര്യാലയം ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് റഷ്യൻ വിദേശ മന്താലയം പ്രസ്താവനയിൽ പറഞ്ഞു